ജെ

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാംസ്ഥാനത്ത് ള്ള്ള്ള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനാ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്ര സംഘടനാ തീരുമാനം ഭീക രതക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു രാജൃത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ആക്രമ ണമുണ്ടായാൽ അക്രമികളെ അവരുടെ ഉറവിടങ്ങളിൽചെന്ന് ഇല്ലാതാക്കു മെന്ന് അദ്ദേഹം ജയ്പൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു ഭീകരത ക്കെതിരായ ഇന്ത്യൻ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ നടപടി തുടക്കം മാത്രമാണെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി നിർണായക തീരുമാ നമെടുത്ത ഐക്യരാഷ്ട്ര സംഘടനയെയും പിന്തുണച്ച രാഷ്ട്രങ്ങളെയും അദ്ദേഹം കൃതജ്ഞത അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട ഭീകര സംഘടനകളെയും നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു

ജീവഹാനി സംഭവിച്ച ഭടന്മാരുടെ കുടുംബത്തോടൊപ്പം നിലകൊള്ളു ന്നതായി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തെ സമാധാനവും വികസ നവും അപകടത്തിലാക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്നതാണ് ഇത്തരം ആക്രമ ണങ്ങളെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഇത്തരം ആക്രമണം നടത്തി യവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ മുന്നറി യിപ്പ് നൽകി ധീര ഭടന്മാരുടെ ജീവത്യാഗം വെറുതെയാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ ദ്രുതകർമ്മ സേനാംഗങ്ങളാണ് മാവോയിസ്റ്റു കൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി വീരമൃത്യു വരിച്ചത് രദ്ദേഷ്ടങ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനാണ് വിവിധ ക്ഷേമപദ്ധതിക ളിലൂടെ എൻ ഡി എ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ദർവ്വട്ടങ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കാർഷിക വായ്പ തിരിച്ചട യ്ക്കാത്തതിന്റെ പേരിൽ രാജ്യത്തെ ഒരു കർഷകനും ജയിലിൽ പോകേണ്ട സാഹചര്യമുണ്ടാകില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു കാർഷിക വായ്പകൾ എഴുതിതള്ളാനും കർഷകർക്കായി പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കാനും കോൺഗ്രസ് പുതിയ നിയമം കൊണ്ടുവരുമെന്നും രാഹുൽഗാന്ധി മധ്യപ്രദേശിലെ പിപാര്യയിൽ നടത്തിയ റാലിയിൽ അറി യിച്ചു

ജെ പി അധ്യക്ഷൻ അമിത്ഷായും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ആരോപിച്ച് കോൺഗ്രസ് നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കൂം പുൽവാമയിൽ വീര മൃത്യു വരിച്ച സൈനികരുടെ പേരിൽ പ്രധാനമന്ത്രിയും ബി ജെ പി അധ്യ ക്ഷനും വോട്ട് തേടിയെന്നാണ് കോൺഗ്രസിന്റെ ഹർജി നേരത്തെ തെര ഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയെങ്കിലും ചട്ടലംഘനം നടത്തിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട് ഇതിനെതിരെയാണ് കോൺഗ്രസ് എം പി സുസ്മിത ദേവ് സുപ്രീംകോടതിയെ സമീപിച്ചത് ദർവ്വെടെ ദ സുപ്രീംകോടതി മുൻ ജീവനക്കാരി ഉന്നയിച്ച ലൈംഗികാരോപണം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിഷേധിച്ചു പീഡന പരാതിയിൽ സുപ്രീംകോ ടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ മൊഴി സുപ്രീംകോടതി ആഭ്യ ന്തര അന്വേഷണ സമിതി ഇന്നലെ രേഖപ്പെടുത്തി സമിതിയുടെ അഭ്യർത്ഥന മാനിച്ച് മൊഴി നൽകാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറാവുകയായിരുന്നു ആഭ്യന്തര സമിതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെന്ന് ആരോപിച്ച് അന്വേഷണവുമായി സഹ കരിക്കില്ലെന്ന് പരാതിക്കാരി കഴിഞ്ഞദിവസം വൃക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് പരാതിക്കാരിയുടെ അഭാവത്തിലും നടപടികൾ തുടരാൻ സമിതി തീരുമാനിച്ചു ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ സമിതിയാണ് അന്വേഷണം നടത്തുന്നത്

എഫ് ഉന്നയിച്ച കള്ളവോട്ട് പരാതിയിൽ ജില്ലാ കലക്ടർമാർ ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും കള്ളവോട്ട് ചെയ്തതായി സംശയിക്കുന്നവരിൽ നിന്ന് മൊഴി എടുത്തശേഷമായിരിക്കും തുടർ നടപടികൾ

പി വൻ മുന്നേറ്റം നടത്തുമെന്നും പല സീറ്റുകളിലും വിജയിക്കുമെന്നും ബി ജെ പി ദേശീയ സെക്രട്ടറിയും സംസ്ഥാന പ്രഭാരിയുമായ എച്ച് രാജ അവകാശപ്പെട്ടു കൊച്ചി യിൽ ബി

പി സംസ്ഥാന നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം പ്രളയക്കെടുതിയും ശബരിമല വിഷയവും ബി ജെ പിക്ക് അനുകൂലമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള അധ്യക്ഷനായിരുന്നു

ജെ പി സ്ഥാനാർത്ഥി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ മൂന്ന് ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണത്തിൽ നിന്ന് വിലക്കി ഭീകരവിരുദ്ധ സ്കാഡ് മേധാവി ഹേമന്ദ് കർക്കറെയുടെ മരണത്തോടും ബാബ്റി മസ്ജിദ് തകർത്ത സംഭവത്തോടും ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ പേരിലാണ് വിലക്ക്

ഇന്ന് ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷകളും നാളെ കണക്ക് പരീക്ഷയുമാണ്

ഡൽഹി മുംബൈ ദുബായ് എന്നിവിടങ്ങളിലും ഓരോ പരീക്ഷാകേന്ദ്രമുണ്ട്

ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് വരെയാണ് പരീക്ഷ

വിപണിവിലയും ഗവൺമെന്റ് നിശ്ചയിച്ച ന്യായ വിലയും തമ്മിൽ വൃത്യാസം കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ് ബജറ്റിൽ പത്ത് ശതമാനം വിലവർദ്ധന ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്

ഫോനി ചുഴലിക്കാറ്റ് മൂലം കേരളത്തിൽ കാര്യമായ കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് വിലയിരു ത്തൽ

ഇതോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ദർശ്ട്ട്ടെടു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ക്യാപ്റ്റനും മലയാളിയുമായ പി ആർ ശ്രീജേഷിനെ രാജീവ്ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്തു

റിയോ ഒളിമ്പിക്സിൽ ടീം ഇന്ത്യയെ നയിച്ച ശ്രീജേഷിന്റെ നേതൃത്വ ത്തിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തിയത് രുമ്പ്പെടു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേസിൽ അടിയന്തിരമായി വാദം കേൾക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിസ് എ എൻ ഖാൻവിൽക്കർ അധ്യ ക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ രണ്ട് ജില്ലകൾക്കു ള്ളിൽ പരിമിതപ്പെടുത്തുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശൃപ്പെട്ടു അംഗപരിമിതരുടെ യാത്രാസൌജന്യം ഇല്ലാ താക്കുന്ന കോർപ്പറേഷന്റെ നടപടികളിൽ ഗവൺമെന്റ് ഇടപെടണമെന്നും കെ

രദേഷ്ടെടു ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിർത്തിവെച്ചു

ജില്ലയിലെ മറ്റ് ഹൈഡൽ ടൂറിസം പദ്ധതികളും വെള്ളക്കുറവ് മൂലം പ്രതിസന്ധിയിലാണ് രദ്ദേഷ്ടങ കോൺഗ്രസ് നേതാവ് എ ബാലറാമിന്റെ ഒന്നാം അനുസ്മരണ സമ്മേള നത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ബാലറാം പുരസ്കാരത്തിന് യൂത്ത് കോൺഗ്രസ് ദേശീയ കോ ഓർഡിനേറ്റർ രമ്യ ഹരിദാസിനെ തെരഞ്ഞെടു ത്തു ഈ മാസം ആറിന് കോഴിക്കോട്ട് അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും

തൊടുപുഴ മുനിസിപ്പൽ ടൌൺഹാളിൽ ഉച്ചയ്ക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഗവൺമെന്റിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതി സുഭിക്ഷയുമായി ചേർന്ന് തൊടുപുഴ പൊലീസും റോട്ടറി ക്ലബും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്

റോഡിനു സമീപം നിർത്തിയിട്ട കാറിൽ നിന്നാണ് രണ്ട് വാൾ നാല് സ്റ്റീൽ റാഡ് എന്നിവയും കണ്ടെടുത്തത് കാർ നാലു ദിവസമായി തീരദേശത്ത് പ്രലയിടത്തും നിർത്തിയിട്ടിരുന്നതായി നാട്ടുകാർ പൊലീസിനെ അറിയിച്ചിരുന്നു

കൂടെയുണ്ടാ യിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു രദ്ദേഷ്ടങ കണ്ണൂർ പേരാവൂരിനടുത്ത് ഇരുപത്തഞ്ചാം മൈലിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് മൂന്ന് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ആറുപേർക്ക് പരി ക്കേറ്റു രണ്ട് കുട്ടികളുടെ പരിക്ക് ഗുരുതരമാണെന്ന് പൊലീസ് അറിയിച്ചു